ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നു

എട്ടു ജില്ലകളിൽ റെഡ് അലർട്ട്

സുധാകരൻ

സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താനും പ്രളയ മേഖലകൾ നേരിൽ കാണാനും ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് അൽപസമയത്തി നകം കൊച്ചിയിലെത്തും ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോ ടൊപ്പമുണ്ടാകും

ഇടുക്കി ചെറുതോണി ഡാം പരിസരപ്രദേശങ്ങൾ ഉരുൾപൊട്ടലുണ്ടായ തടിയമ്പാട് അടിമാലി മേഖല വെള്ളപ്പൊക്കമു ണ്ടായ ആലുവ പറവൂർ എന്നിവിടങ്ങളിൽ അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തും രണ്ടരയോടെ തിരിച്ച് വിമാനത്താവളത്തിലെത്തുന്ന രാജ്നാഥ് സിംഗ് പറവൂർ താലൂക്കിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് റോഡ് മാർഗ്ഗം പോകും നാലുമണിവരെ ക്യാമ്പുകൾ ് സന്ദർശിക്കുന്ന കേന്ദ്ര മന്ത്രി നാലരയോടെ കൊച്ചി വിമാനത്താവള ഓഫീസിലെത്തും തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘവു മായി അഞ്ചുമണിക്ക് ചർച്ച നടത്തും

ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് താഴുന്നു

അണക്കെട്ടിലെ അഞ്ചു ഷട്ടറു കളും ഉയർത്തിയാണ് വെള്ളം ഒഴുക്കിവിടുന്നത് സെക്കന്റിൽ ഏഴരല ക്ഷത്തോളം ലിറ്റർ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നാൽ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞു

ഇട മലയാർ അണക്കെട്ടിലേയും ജലനിരപ്പ് കുറയുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു മലയോരമേഖലയിൽ പുലർച്ചെമുതൽ മഴ പെയ്യുന്നുണ്ട്

ആറളംഫാം അംഗനവാടിയിലും മൊണ്ടയാം പറമ്പ് ദേവസ്വം എൽ

സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നത്

വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് ഓവർസിയർമാരും കെ

അധികൃതരും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്

ബത്തേരി മൂന്നാംമൈൽ കോളനിയിലെ രാജമ്മയാണ് രാവിലെ മരിച്ചത്

വയനാട് ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്

മധ്യഅറബിക്കടൽ മേഖലയിൽ മീൻപിടുത്ത ത്തിന് പോകരുതെന്ന് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടൽ ഭാഗത്തും കനത്ത മഴയുണ്ടാകും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെത്തുടർന്ന് കോഴിക്കോട് വയ നാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ല കളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ച വരെയും കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ നാളെവരെയും റെഡ് അലർട്ട് തുട രും കാല വർഷക്കെടുതി കണ്ക്കിലെടുത്ത് ഓണാ ഘോഷ പരിപാടികൾ ചടങ്ങിലൊതുക്കുന്ന് കാരൃത്തിൽ ഇന്ന് തന്നെ തീരുമാന മെടുക്കുമെന്ന് മന്ത്രി ക്ടകംപള്ളി സുരേന്ദ്രൻ വൃക്തമാക്കി

തൃപ്പൂ ണിത്തുറയിലും മറ്റും ഓണത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കും ആചാര ങ്ങൾക്കും തടസ്സമുണ്ടാകില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

തകർന്ന റോഡുകൾ ഉടൻ പുനർനിർമ്മിക്കും

ആലപ്പുഴയിൽ എ സി റോഡ് സന്ദർശിക്കാനെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോടാണ് ഇക്കാരൃം അറിയിച്ചത്

കലാപരി പാടികൾക്കായി നീക്കിവെച്ച തുക സംസ്ഥാന ഗവൺമെന്റിന്റെ ദുരിതാ ശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ചന്ദ്രികാ ദേവി അറിയിച്ചു ആഘോഷത്തിന്റെ ഭാഗമായ ഘോഷയാത്രയും പതാകാപ്രയാണവും പതിവുപോലെ നടക്കുമെന്നും ചെയർപേഴ്സൺ പറ ഞ്ഞു

രാമകൃ ഷ്ണൻ പറഞ്ഞു കോഴിക്കോട് പുതുപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി

ഇന്നലെ കോഴിക്കോട്ട് മന്ത്രിമാരായ ടി

രാമകൃഷ്ണന്റെയും എ

ശശീന്ദ്രന്റെയും സാന്നിധൃത്തിൽ നടന്ന ദുരന്തനിവാരണ അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി പൊതുമരാമത്ത് വകുപ്പി ന്റെയും കെ

ടി

യുടെയും ഉദ്യോഗസ്ഥരാണ് റോഡ് നവീകരണ ത്തിന് നേതൃത്വം നൽകുന്നത് ജമ്മുകശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പൊലീസ് ഉദ്യോ ഗസ്ഥന് വീരമൃത്യു മൂന്ന് സുരക്ഷാസേനാംഗങ്ങൾക്ക് പരിക്കേറ്റു

ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് വിവരത്തെതുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിപ്പുണ്ടായതെന്ന് ഡി

വൈദ് ട്വിറ്ററിൽ വൃക്തമാക്കി

അടുത്തമാസം ഒന്നുമുതൽ തീരുമാനം നിലവിൽവരുമെന്ന് മന്ത്രാലയ ഉദ്യോഗ്സ്ഥൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഡിജിറ്റൽ ഇടപാ ടിലൂടെ ടിക്കറ്റെടുക്കുന്നവർക്ക് കഴിഞ്ഞവർഷം ഡിസംബർ മുതലാണ് റെയിൽവേ സൌജന്യ ഇൻഷൂറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയത് സൌജന്യ ഇൻഷൂറൻസ് നിർത്തലാക്കി പണം ഈടാക്കി ഇൻഷൂറൻസ് ഏർപ്പെടു ത്താനാണ് നീക്കമെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ വംശജനായ വിഖ്യാത എഴുത്തുകാരൻ സർ

പതിനെട്ടാംവ യസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റി വിദ്യാധർ സൂരജ് പ്രസാദ് നയ്പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻപേര് രൂക്ഷമായ പ്രകൃതി ദുരന്തം കണക്കിലെടുത്ത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനം ജനകീയമാക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മീഷൻ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിരു ന്നെങ്കിൽ സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ ആഘാതം കുറയ്ക്കാമായി രുന്നുവെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു അനധികൃത നിർമ്മാണവും ഖനനവും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകും ഉദ്യോ ഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് സാമ്പത്തിക താൽപര്യത്തിനുവേണ്ടി ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അജയ്ജയറാം ഫൈനലിൽ

ഫൈൻലിൽ ഇൻഡോനേഷ്യയുടെ ഷെസാർ ഹിരൺ റുസ്തവിറ്റോയാണ് അജയ്ജയറാമിന്റെ എതിരാളി ഉപേക്ഷിക്കപ്പെടുന്നു കുട്ടികളുടെ സംരക്ഷണത്തിനും പുന്നരധിവാസത്തിനും സംസ്ഥാന ഗവൺമെന്റ് പ്രപ്പേക പരിഗണന നൽകുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു കോഴി ക്കോട് മെഡിക്കൽ കോളേജിന് സമീപം സംസ്ഥാന ശിശുക്ഷേമസമിതി യുടെ സംരക്ഷണ കേന്ദ്രത്തിന്റെയും അഭയ കേന്ദ്രത്തിന്റെയും കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച സിനിമാ സാംസ്കാരിക പ്രവർത്ത കനും മൃദംഗ് തബല കലാകാരനുമായ ഹരിനാരായണന്റെ മൃതദേഹം ഉച്ച കഴിഞ്ഞ് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും

ഒഡേസ ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ആർട്ടിസ്റ്റ് കളക്ടീവ് സംഘടനാ ഭാരവാഹി യുമായുമായിരുന്നു

ആദ്യമായി ഒരു വനിതയെ കമ്മറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്മറ്റി യോഗം ചേർന്ന് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കും കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമായി തുടരുന്ന സാഹചരൃ ത്തിലും നിരോധനം ലംഘിച്ച് പ്രവർത്തിക്കുന്ന കാറികളുടെ ലൈസൻസ് മുന്നറിയിപ്പില്ലാതെ റദ്ദ് ചെയ്യുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു അനധി കൃതമായി പ്രവർത്തിക്കുന്ന കാറികളെപറ്റി പൊതുജനങ്ങൾക്ക് നേരിട്ട് വിവരം നൽകാവുന്നതാണ് കൊട്ടിയൂർ ബോയ്സ് ടൌൺ ചുരം റോഡി ലൂടെ ഭാരവാഹനങ്ങളുടെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു നാളെ നടക്കേണ്ട ഒന്നാംവർഷ ഹയർസെക്ക്ണ്ടറി ഇംപ്രൂവ്മെന്റ് സപ്പിമെന്ററി പരീക്ഷ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയതായി ഹയർ സെക്ക ണ്ടറി പരീക്ഷാബോർഡ് സെക്രട്ടറി തിരുവനന്തപുരത്ത് അറിയിച്ചു മഴ ക്കെടുതി മൂലം ചില ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെതു ടർന്നാണ് പരീക്ഷ മാറ്റിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ നാളെ ആഘോഷിക്കും

കാസർകോട് അഡൂർ വെള്ളച്ചേരിയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് അമ്മക്കും മകനും പരിക്കേറ്റു രണ്ടുപേരും കാസർകോട് സ്ഥകാര്യ ആശു പത്രിയിൽ തീവ്രപരിചരണവിഭാഗത്തിൽ ചികിത്സയിലാണ്